ബെൽജിയത്തെ നേരിടും

രാജ്യത്തെ കാർഷിക മേഖ്ലൂൺ നശിപ്പിക്കുന്ന ഒരു കാലാവസ്ഥാ ഉടമ്പടിയിലും ഒപ്പുവിയ്ക്ക്ല്ലെന്ന് ബ്രസീലിയൻ പ്രസിഡന്റ് ജയർ ബൊൾസോനാറോ പറഞ്ഞു

തീവ്രവാദ പ്രവർത്തനങ്ങൾക്കു വേണ്ടിസമൂഹ മാധ്യമങ്ങളെയും ഇന്റർനെറ്റിനെയും ദുരുപ യോഗം ചെയ്യുന്നതിനെതിരെ ഡിജിറ്റൽ രംഗം ഒന്നിച്ചു പോരാട ണമെന്നും നേതാക്കൾ ആഹ്വാനം ചെയ്തു

സാമ്പത്തികമായി അതിവേഗം വളർന്നുകൊണ്ടിരുക്കുന്ന ഇന്ത്യയിലേക്ക് വരാൻ ശ്രീ മോദി ലോക നേതാക്കളെ ക്ഷണിച്ചു ഇന്തൃയുടെ മഹത്തായ ചരിത്രവും നാനാത്വവും മനസ്സിലാക്കാനും ഇത് ഉപകരിക്കു മെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിൽ ബ്യൂണസ് ഐറിസിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമുണ്ടായത് വ്യാപാര മേഖലയിൽ ഉണ്ടായിട്ടുള്ള ശീതസമരം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തുടരാനും ഇരുരാജൃങ്ങളും സമ്മതിച്ചിട്ടുണ്ട്

തിരഞ്ഞെടുപ്പ് റാലികൾ റോഡ് ഷോകൾ പൊതുയോഗങ്ങൾ എന്നിവയുമായി വിവിധ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളെല്ലാം പ്രചാരണരംഗത്ത് സജീവമാണ് കൂടുതൽ വിവരങ്ങളുമായി മല്ലിക

ജെ

ദേശീയ അധ്യക്ഷൻ അമിത്ഷാ മുതിർന്ന നേതാവ് നിതിൻ ഗഡ്കരി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ഗുലാം നബി ആസാദ് ജയ്റാം രമേശ് വീരപ്പമൊയ്ലി കർണ്ണാടക മന്ത്രി ഡി

ഹൈദരാബാദിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രച്ച് രണ്ട്തിനെത്തുന്നതിന് മുന്നോടിയായി ബി ജെ

ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് നാലിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും

എസ് ചീഫ് ചന്ദ്രശേഖർ റാവു റ്റി ഡി

അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു ഗുലാംനബി ആസാദ് കർണ്ണാടക മന്ത്രി ഡി

എം അധ്യക്ഷൻ അസദുദ്ദീൻ ഒവൈസിയും എട്ട് മണ്ഡലങ്ങളിലേയും വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാൻ രംഗത്തുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദക്ഷിണാഫ്രിക്കയുമായുള്ള ഗാന്ധിജിയുടെ ആത്മബന്ധം പ്രശസ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു

ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച്ച് നടന്ന പരിപാടിയിൽ സംസ്ഥാന ആരോഗൃമന്ത്രി ദീപക് ് സാവന്ത് ആണ് ഇക്കാര്യം അറിയിച്ചത് ഗവൺമെന്റിന്റെ എല്ലാവർക്കും ചികിൽസ എന്ന പദ്ധതിയ്ക്കു കീഴിൽ എച്ച് ഐ

ബാധിതർക്ക് എത്രയുംപെട്ടെന്നുതന്നെ ചികിത്സ ഉറപ്പാക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു

കുടുംബം സഞ്ചരിച്ചി രുന്ന കാർ സിമെന്റ് കയറ്റി വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുക യായിരുന്നു വിദേശത്ത് നിന്നെത്തിയ കുടുംബത്തെ ചെന്നെ യിൽ നിന്നും സ്വീകരിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടം ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്ന് പോലീസ് അറിയിച്ചു

ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗ് സെക്രട്ടറി നൈപുണ്യ വികസന മന്ത്രാലയം സെക്രട്ടറി ഇന്ത്യൻ എയർലൈൻസ് ചെയർമാൻ ആന്റ് മാനേജിംഗ് ഡയറക്ടർ തുടങ്ങി വിവിധ സ്ഥാനങ്ങൾ ശ്രീ

ശ്രീനഗർ ജമ്മു ദേശീയ പാതയിൽ ഒരു ഭാഗത്തേക്ക് മാത്രമേ ഇനി വാഹനങ്ങളെ കടത്തിവിടുകയുള്ളൂ എതിർ ദിശയിൽ നിന്ന് യാതൊരു വാഹനങ്ങളെയും കടത്തിവിടില്ലെന്ന് ട്രാഫിക് പോലിസ് അറിയിച്ചു റോഡിൽ മഞ്ഞുവീഴ്ച കുറയുന്നതിനനുസരിച്ച് കാർഗിലിൽ കുടങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾക്ക് മിനി മാർഗ് വഴി ശ്രീനഗറിലേക്ക് എത്താനാകും ദേശീയപാതയുടെയും റോഡുകളുടെയും അവസ്ഥയനുസരിച്ച് മാത്രമേ പ്രദേശത്തേക്ക് യാത്ര പാടുള്ളൂ എന്നും അറിയിപ്പുണ്ട്

ലോക നേതാക്കൾ ഉൾപ്പെടെയുള്ള വൻ ് ജനാവലിയുടെ സാന്നിധൃത്തിലാണ് പ്രസിഡന്റ് സ്ഥാനാരോഹണം നടത്തിയത് തന്റെ ഭരണകാലത്ത് തന്നെ ജനഹിത പരിശോധന നടത്താൻ ആഗ്രഹിക്കുന്നതായും വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും ഒബ്രേഡർ പ്രഖ്യാപിച്ചു

ഭുവനേശ്വറിലാണ് മത്സരം നടക്കുന്നത് ഇന്നലെ നടന്ന പൂൾ സി മാച്ചിൽ ജർമ്മനി പാകിസ്ഥാനെയും നെതർലന്റ്സ് മലേഷ്യയെയും തോല്പിച്ചു

ഇതിനായി ഡിജിറ്റൽ സ്കൈ പ്ലാറ്റ് ഫോം എന്ന പോർട്ടൽ തയ്യാറാക്കിയിട്ടുണ്ട് വിദൂര നിയന്ത്രിത ചെറു വിമാനങ്ങളായ ഡ്രോണുകളുടെ സുരക്ഷിതമായ ഉപയോഗം സാധ്യമാക്കുന്നതിനായി വ്യോമയാന നിയമത്തിൻ കീഴിൽ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് ഈ വർഷം ഓഗസ്റ്റിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു ഡ്രോണുകൾ ഭാവിയിൽ വൃവസായ സാധൃതകൾ നല്കുന്നു ണ്ടെന്നും വ്യാപകമായി ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് രാജ്യ ത്തിന് അഭിമാനമാണെന്നും വ്യോമയാനമന്ത്രി സുരേഷ് പ്രഭു പറഞ്ഞു

അടുത്ത ആയ്ചയാണ് പാർലമെന്റ് പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട വാദം സുപ്രീം കോടതിയിൽ നടക്കുന്നത് വിധി കാത്തിരിക്കുന്നതിനിടയിലും നിലവിലെ ഗവൺമെന്റിനെ മാറ്റാനുള്ള നീക്കം ബുധനാഴ്ച ഉണ്ടാകുമെന്ന് വിവിധ വക്താക്കൾ അറിയിച്ചു സുപ്രീംകോടതി വിധി കാത്തിരിക്കുകയാണെന്ന് പുതിയ പ്രധാനമന്ത്രി മഹീന്ദ രാജ്പക്സെ പറഞ്ഞു ഏഴു ജഡ്ജിമാർ ഉൾപ്പെട്ട ബഞ്ചാണ് സുപ്രീംകോടതിയിൽ വാദം കേട്ട് വിധി പ്രസ്താവിക്കുന്നത്

സഹകരണ സംഘങ്ങളുടെ മേൽനോട്ടത്തിൽ നടപ്പാക്കുന്ന കെയർ ഹോം പദ്ധതി പ്രകാരമുള്ള വീടുകളുടെ ആദ്യശിലാസ്ഥാപനവും ചെങ്ങന്നൂരിൽ നടന്നു